സ്ത്രീകളെ ബഹുമാനിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും വനിതാ ശാക്തീകരണത്തിനും ദിനാചരണ വേളയിൽ എല്ലാവരും സമർപ്പിതരാകണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ത കേന്ദ്ര ഗവൺമെന്റിന് കീഴിലെ സംരക്ഷിത സ്മാരകങ്ങളിൽ സ്ത്രീകൾക്ക് ഇന്ന് സൌജന്യ പ്രവേശനം

ത ഇന്ത്യക്കും ബംഗ്ലാദേശിനുമിടയിലെ മൈത്രിസേതു പാലം ഇന്ന് വിഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും

സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അവരെ ശാക്തീകരിക്കാനും തുല്യപങ്കാളിത്തം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് മാർച്ച് എട്ട് വനിതാ ദിനമായി ആഘോഷിക്കുന്നത് സ്ത്രീ നേതൃത്വത്തിൽ കോവിഡ് കാല ലോകത്ത് തുല്ല്യത എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിന പ്രമേയം

സ്ത്രീ മുന്നേറ്റത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും തുല്ല്യ പങ്കാളിത്തവും സമത്വവും ഇനിയും പൂർത്തീകരിക്കാനാകാത്ത ലക്ഷ്യങ്ങളാണ് സ്ത്രീത്വത്തിന്റെ പ്രാധാന്യവും വിലമതിക്കാനാവാത്ത അവരുടെ പങ്കാളിത്തവും സമൂഹ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗോള ദേശീയ പ്രാദേശിക തലങ്ങളിൽ നിരവധി പരിപാടികൾ ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് പരമാവധി പൊലീസ് സ്റ്റേഷനുകളുടെ ചുമതല ഇന്ന് വനിതാ ഓഫീസർമാർക്കായിരിക്കും

സ്ത്രീകളുടെ ഉന്നമനം തടയുന്ന പരമ്പരാഗത രീതികളും നയങ്ങളും മാറ്റിയെടുക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് ഈ വേളയിൽ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം വനിതാ ദിന സന്ദേശത്തിൽ നിർദേശിച്ചു കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും പ്രചോദന ശക്തിയാണ് വനിതകളെന്നും സാമൂഹിക ഘടനയുടെ ഒഴിവാക്കാനാവാത്ത ഘടകമാണ് അവരെന്നും രാഷ്ട്രപതി വിലയിരുത്തി രുര രാജ്യത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വനിതകൾക്ക് സാധിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് മികച്ച സംഭാവനകൾ നൽകാനും സ്ത്രീ സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് രാംനാഥ് കോവിന്ദ് പറഞ്ഞു സ്ത്രീകളുടെ സാമൂഹ്യ സാമ്പത്തിക നില കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് വനിതാ സുരക്ഷ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യം എന്നീ രംഗങ്ങളിൽ ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ കൂടി പൂർത്തിയായാലെ സ്ത്രീകളെ കൂടുതൽ ക്രിയാത്മകമാക്കാനും ശാക്തീകരിക്കാനും സാധ്യമാകു എന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹം ദിനാചരണ വേളയിൽ ആശംസകൾ അർപ്പിച്ചു രും അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് ബന്ധപ്പെട്ട് ഫിലിംസ് ഡിവിഷനും ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയും ചേർന്ന് ഇന്ന് മുതൽ മൂന്ന് ദിവസം ഡോക്യുമെന്ററി ഫീച്ചർ ചിത്രങ്ങളുടെ പ്രദർശനവും വെബ്ബിനാറും സംഘടിപ്പിക്കും

അനുപമയും ഉദ്ഘാടന ചടങ്ങിലെ വെബ്ബിനാറുകളിൽ പങ്കെടുക്കും നാളെ വനിതാ ചലച്ചിത്ര സംവിധായകർ പങ്കെടുക്കുന്ന വെബ്ബിനാറും ബുധനാഴ്ച്ച കാഴ്ചാവൈകല്യത്തെ അതിജീവിച്ച് മികച്ച നേട്ടങ്ങൾ കൈവരിച്ച രണ്ട് വനിതാ പ്രൊഫഷണലുകൾ പങ്കെടുക്കുന്ന വെബ്ബിനാറും ഇതിന്റെ ഭാഗമായി നടക്കും ഫിലിംസ് ഡിവിഷന്റെ വെബ്സൈറ്റുകളിൽ തത്സമയം പരിപാടികൾ സംപ്രേഷണം ചെയ്യും രംഭ അന്താരാഷ്ട്ര വനിതാ ദിനം പ്രമാണിച്ച് കേന്ദ്ര ഗവൺമെന്റിനു കീഴിലെ എല്ലാ സംരക്ഷിത സ്മാരകങ്ങളിലും സ്ത്രീകൾക്ക് ഇന്ന് പ്രവേശനം സൌജന്യമായിരിക്കും

രുര ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെ എറണാകുളം പള്ളത്തു രാമൻ ഗ്രൌണ്ടിൽ ദക്ഷിണ ഭാരത വനിതാ കളരിയുടെ ആഭിമുഖ്യത്തിൽ വനിതകൾ കളരി യോഗ എന്നിവ അവതരിപ്പിച്ചു

രമേ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാനും സ്വയരക്ഷക്ക് അവരെ പ്രാപ്തരാക്കുന്നതിനും ഇടുക്കി ജില്ലയിൽ ബോധവൽക്കരണ പരിപാടികളും പരിശീലനവും പുരോഗമിക്കുന്നു പിങ്ക് പൊലീസും ഷാഡോ പെട്രോളിങ്ങ് പൊലീസും സ്കൂൾ കോളജ് കുടുംബശ്രീ യൂണിറ്റുകൾക്കായി മൂന്നാർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തിവരികയാണ്

ദ്ദേ സാമൂഹ്യപരിഷ്ക്കരണത്തിന്റേയും നവോത്ഥാനത്തിന്റേയും നാടായ കേരളം ഇന്ന് അഴിമതിയുടേയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടേയും അക്രമങ്ങളുടേയും നാടായി മാറിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി മാറി വരുന്ന മുന്നണി ഭരണങ്ങൾ കേരളത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച വിജയയാത്രയുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ശംഖുമുഖത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകേണ്ട എട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച അമിത്ഷാ പൊതുജീവിതം നയിക്കുന്നവർ ചോദ്യങ്ങൾക്ക് സുതാര്യമായ മറുപടി പറയണമെന്നും ആവശ്യപ്പെട്ടു കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വിരോധത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം അമിത്ഷാ നിഷേധിച്ചു

ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനു പുറമെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രഭാരി സി

രാധാകൃഷ്ണൻ ദേശീയ സംസ്ഥാന ബിജെപി നേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു രും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാലാഴ്ച്ച മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് മുന്നണികളിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഫിനിഷിങ്ങ് ലൈനിലേക്ക് ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട് സിപിഐഎമ്മിന്റേയും സിപിഐയുടേയും സ്ഥാനാർത്ഥി നിർണയവും ഏറെക്കുറെ ധാരണയിലെത്തിയിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ രണ്ടോ മൂന്നോ ദിവസം കൂടി വേണ്ടിവരും യുഡിഎഫും ഘടകകക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎയിലും ഘടകകക്ഷികളുമായി സീറ്റ് ധാരണ ഏറെക്കുറെ പൂർണമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും രുര എൽഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് ഇന്ന് കണ്ണൂർ പിണറായിയിൽ തുടക്കമാവും വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് പിണറായി കൺവെൻഷൻ സെന്ററിൽ സ്വീകരണമൊരുക്കിക്കൊണ്ടാണ് പ്രചരണം ആരംഭിക്കുന്നത്

ഫെനി നദിക്ക് കുറുകെ രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ നിർമ്മിച്ച പാലം ഇരു രാജ്യങ്ങളുടേയും ഉഭയകക്ഷി ബന്ധങ്ങളും സൌഹൃദവും ഉൌട്ടിഉറപ്പിക്കുന്നതാണ് ത്രിപുരയിലെ നിരവധി അടിസ്ഥാന മേഖലാ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും രുമ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാംഘട്ടം ഇന്നാരംഭിക്കും കോവിഡ് സാഹചര്യത്തിൽ രാജ്യസഭ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചക്ക് രണ്ട് വരെയും ലോക്സഭ വൈകീട്ട് നാലുമണി മുതൽ രാത്രി ഒൻപത് വരെയുമാകും സമ്മേളിക്കുക

രേര അടുത്ത രണ്ട് വർഷം കൊണ്ട് പട്ട് ഉൽപ്പാദനത്തിൽ ഇന്ത്യ പൂർണമായും സ്വയംപര്യാപ്തമാകുമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു

രും കണ്ണൂർ നടാൽ ബൈപ്പാസിൽ ഇന്നലെ രാത്രി ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് രണ്ട് പേർ മരിച്ചു മുഴപ്പിലങ്ങാട് സ്വദേശികളായ സുമേഷ് ഫൈസൽ എന്നിവരാണ് മരിച്ചത് ഒരാൾക്ക് പരിക്കേറ്റു

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം